സന്തുലിതാവസ്ഥ ഉണ്ടാകുന്ന തരത്തിൽ നിയമത്തെ വ്യാഖ്യാനിച്ച സുപ്പ്രീം കോടതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്ദീന്നിച്ചു

അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് തിങ്കളാഴ്ച അഹമ്മദാബാദിലെത്തും

ഇന്ത്യയുമായി ഫ്ലപ്രദമായ ചർച്ച നടക്കാൻ ന് പാകിസ്ഥാൻ ഭിക്ക്ര്രെ അടിച്ചമർത്തണമെന്ന് അമേരിക്ക

ലോകാരോഗ്യ സംഘടനാ സംഘം ഇന്ന് വുഹാനിലേക്ക് പോകും

യൂണിവേഴ്സിറ്റി ഗെയിംസ് പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും

തുടക്കമായി കരട് നൈപുണ്യ നയവും കരിയർ നയവും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ

ന്യൂഡൽഹിയിൽ ദ്വിദിന രാജ്യാന്തര നീതിന്യായി സ്മ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികൾ ആകാശവാണിയോട് പ്രതികരിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതും പ്രതിരോധ സുരക്ഷാ കാര്യങ്ങളും ചർച്ച ചെയ്യും കൊളറോഡോയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവേയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത് നിലവിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലെ വ്യാപാരം അമേരിക്കയുടെ മൊത്തമായുളള ലോക വ്യാപാരത്തിന്റെ മൂന്ന് ശതമാനമാണ്

സമാധാനം ഉറപ്പാക്കുന്നതിലും ഭീകരരെ നേരിടുന്നതിലുമൊക്കെ ഇരുരാജൃങ്ങൾക്കും സമാന താത്പര്യമാണ് തിങ്കളാഴ്ച അഹമ്മുദ്ധ്പ്പാദിലെ മൊടേര സ്റ്റേഡിയത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുട്ട് അ്മേരിക്കൻ പ്രസിഡന്റും പങ്കെടുക്കുന്ന നമസ്തേ ട്രംപ് പരിപാട്ടി ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണിത്

ജനാധിപത്യ മൂല്യങ്ങളും തന്ത്രപ്രധാന താല്പര്യങ്ങളും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും അടിസ്ഥാനമാക്കിയാണ് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണമെന്ന് മുതിർന്ന വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി മോദിയും തമ്മിൽ വളരെ അടുത്ത സൌഹൃദമാണുള്ളത്

ഈ സാഹചരൃത്തിൽ ഇന്തൃയുടെ ഊർജ്ജ ആവശൃങ്ങൾ നിറവേറ്റാൻ അമേരിക്ക തയ്യാറാണെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു

ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനും ഉഭയകക്ഷി ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു

കഴിഞ്ഞ തിങ്കള്ളൂഴ്ചയാണ് പന്ത്രണ്ടംഗ വിദഗ്ധ സംഘം ചൈനയിൽ എത്തിയത്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

വൈറസ് പടർന്നുപിടിക്കുന്നത് നിയന്ത്രിക്കുന്നതിനോടൊപ്പം രോഗം ഭേദമാക്കുന്നതിനുള്ള അംഗീകൃത ഔഷധം കണ്ടെത്തുക എന്നതാണ് ലോകാരോഗൃ സംഘടനയുടെയും ചൈനീസ് ആരോഗൃ മന്ത്രാലയത്തിന്റെയും പ്രധാന ദൌതൃം

തിരിച്ചെത്തിയ കപ്പൽ യാത്രക്കാരിൽ കൊറോണ ബാധിതരുടെ എണ്ണം ഇനിയും കൂടാൻ സാധൃതയുണ്ടെന്ന് ആരോഗൃ മന്ത്രാലയം അറിയിച്ചു

രണ്ടാഴ്ചയിലേറെയായി ടോക്കിയോയിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് കപ്പൽ

കോഴിക്കോട് സംസ്ഥാന നൈപുണ്യോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദേശീയ നൈപുണ്യോത്സവത്തിന് ആതിഥ്വമരുളാൻ കേരളം സന്നദ്ധത അറിയിച്ചതായി മന്ത്രി അറിയിച്ചു മേളയോട് അനുബന്ധിച്ച് സാങ്കേതിക പ്രദർശനം വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന ഓപ്പൺ ഫോറം കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത വിട്ടയയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളിൽ ക്ട്രാ്ളായ നളിനിയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണ്ണൂനിയ്ക്ക് എത്തിയ സാഹചര്യത്തിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത് ്രാജീവ്ഗാന്ധി വധക്കേസിലെ പ്രതികളെ വിട്ടയയ്ക്കണമെന്ന് തുമിഴ്ച്നാട് സർക്കാർ ശുപാർശ നല്കിയിരുന്നു എന്നാൽ ക്യേറ്ട്ടത്തിന്റെ അനുമതിയില്ലത്ത സാഹചര്യത്തിൽ ഇതിന് പ്ലിസ്ക്തിയില്ലെന്ന് കേന്ദ്രം വിശദീകരിച്ചു കേന്ദ്ര ഏജൻസിയായ സി ബി ഐ അന്വേഷിച്ച കേസായതിനാൽ പ്രതികളെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി ആവശ്യമാണെന്ന് നേരത്തെ പ്രതികൾ നല്കിയ ഹർജിയിൽ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ജി രാജഗോപാലൻ ചൂിക്കുട്ടി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സർക്കാരുമായും സർവകലാശാലകളിലെ പഠനഗവേഷണ വിഭാഗവും വൃവസായ മേഖലാ പ്രതിനിധികളുമായി സഹകരിച്ചാണ് പരിപാടി

ജി എസ് ഐ സോൻദദ്രയിലുളള സ്വർണ്ണ ശേഖരം കട ത്തുന്നതിനുളള പണി തുടങ്ങിയിട്ട് ഏകദേശം ര് ദശാബ്ദക്കാലമായെന്ന് ആകാശവാണി പ്രതിനിധി റിപ്പോർട്ടു ചെയ്യുന്നു

പുതിയ ബഹുനില മന്ദിരത്തിന് ആറായിരത്തോളം പേരെ ഉൾക്കൊള്ളാനാകും പണി പൂർത്തിയാകുമ്പോൾ കരസേനയുടെ എല്ലാ ഓഫീസുകളും ഇവിടെയ്ടാകും ഉണ്ടാവുക ഓഫീസിനും പാർക്കിംഗ് സൌകര്യത്തിനുമായി ഗ്ദ്ധ് ലക്ഷം ചതുരശ്ര മീറ്റർ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്